സുപ്രീംകോടതി പുനസ്ഥാപിച്ചു

അഹമ്മദാബാദിൽ ഇന്ന് തുടക്കം

വിവിധ വികസന പ്പദ്ധതികൾ പ്രധാനമന്ത്രി നാടിനു സമർപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായിട്ടകിരൺ

പുതുച്ചേരിയിലെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിലെ ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവ്വഹിക്കും

കേരളം തമിഴ്നാട് കർണ്ണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന പൂതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും

സാഗർമാല പദ്ധതിയിൻ കീഴിൽ വരുന്ന പുതുച്ചേരി ചെറുകിട തുറമുഖ വികസന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും പുതുച്ചേരി ഇന്ദിരാഗാന്ധി കായിക സമുച്ചയത്തിലെ അത്ലറ്റിക് ട്രാക്കിന്റെ നിർമ്മാണത്തിനും തുടക്കമിടും

ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്

എല്ലാ ആധുനിക സൌകര്യങ്ങളും സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിനുശേഷം ഇന്ത്യാ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് മൊട്ടേര സ്റ്റേഡിയത്തിൽ തുടങ്ങും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കേന്ദ്രമന്ത്രി അമിത്ഷായോടൊപ്പം സ്റ്റേഡിയത്തിൽ അൽപ്പനേരം ക്രിക്കറ്റ് മൽസരം വീക്ഷിക്കും

പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ സുദീപ് ജെയിൻ നാളെ കൊൽക്കത്തയിലേക്ക് പോകും

പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടാം രൂപീകരണ ദിനത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാരൃം ട്വീറ്റ് ചെയ്തത്

കാലാവസ്ഥാ വൃതിയാനവും ലോകസുരക്ഷയും എന്ന വിഷയത്തിൽ ഐക്യരാഷ്ട്രരക്ഷാ സമിതിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലാവസ്ഥാ വൃതിയാനം സംബന്ധിച്ച യു

മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ടപോലെ കാലാവസ്ഥാ സൌഹൃദ ജീവിത ശൈലിയിലേക്ക് മാറണമെന്ന് ശ്രീ ജാവ്ദേക്കർ അഭ്യർത്ഥിച്ചു

സംന്ത്രഷ് മുക്ത് അസ്ം എന്ന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ തീവ്രവാദ ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്

സ്ഥിതി വിലയിരുത്തിയ ശേഷം മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖരറാവുവാണ് ക്സാസുകൾ പുനരാരാംഭിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയത്

കവരത്തിയിലും അഗത്തിയിലുമാണ് കൂടുതൽ പേർ ചികിത്സയിലുള്ളത്

ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് ആനയോട്ടം നടക്കും

കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ പരമാവധി ആളുകളെ കുറച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടക്കുന്നത്

ജെ

സുരേന്ദ്രൻ കരാർ രാജ്യസുരക്ഷയെ വരെ ബാധിക്കുന്നതിനാൽ ഗൌരവകരമായ അന്വേഷണം ആവശ്യമാണെന്ന് അദ്ദേഹം വയനാട്ടിൽ പറഞ്ഞു പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്ന പ്രചാരണങ്ങളെക്കുറിച്ചും അന്വേഷണം വേണമെന്നും ശ്രീ

സുരേന്ദ്രൻ ആവ്കൾപ്പെട്ടു

നേപ്പാൾ സുപ്രീംകോടതി ചീഫ്ജസ്റ്റിസ് ചോലേന്ദ്ര ശുംശർ റാണയുടെ അധ്യക്ഷതയിലുള്ള അഞ്ച് അംഗ ഭരണഘടനാ ബഞ്ചാണ് സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്

ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയായിരുന്നു നേപ്പാൾ പ്രസിഡന്റ് ബിന്ദ്യ ദേവി ഭണ്ഡാരി പാർലമെന്റ് പിരിച്ചുവിട്ടത് പ്രധാനമന്ത്രി കെ

ശർമ്മ ഒലിയുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഈ തീരുമാനം

എൽ ഫൂട്ബോളിൽ ഇന്ന് ഒഡീഷ മുംബൈ സിറ്റിയെ നേരിടും

താഴെ തട്ടിലുള്ള ജനങ്ങൾക്കായി ജയലളിത നടപ്പിലാക്കിയ നയങ്ങളും പ്രവർത്തനങ്ങളും ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ട്ടിറ്ററിൽ കുറിച്ചു വനിതാശാക്തീകരണത്തിനായുള്ള ജയലളിതയുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായിരുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം അവരുമായി നടത്തിയ സംഭാഷണങ്ങൾ എക്കാലവും ഓർമ്മയിലുണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു

രാജ്യത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച് നിർമ്മിച്ച ഉന്നത നിലവാരമുള്ള ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് വാങ്ങുന്നത് ഡിഫൻസ് റിസേർച്ച് ആന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി

ഒ ആണ് ആയുധങ്ങൾ നിർമ്മിച്ചത്

ൂനാസയുടെ പര്യവേഷണ പേടകമായ പെർസെവറൻസ് റോവർ കുഴിഞ്ഞ ആഴ്ച ചൊവ്വയിൽ ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പ്പുറത്തുവിട്ടിട്ടുണ്ട് കാറ്റിന്റെ ശബ്ദമാണ് റോവർ റെക്കോർഡ് ച്ചെയ്തത്